ഇന്ത്യൻ വംശജ കമലാ ഹാരിസ് വൈസ് പ്രസിഡന്റാകും

എൽ ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ സൺ റൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും

ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റാകുന്നതോടെ ഇന്ത്യൻ വംശജ കമലാ ഹാരിസ് വൈസ് പ്രസിഡന്റാകും

അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഇത്രയധികം വോട്ടുകൾ കരസ്ഥമാക്കുന്നത്

നെവാഡ അരിസോണ ജോർജ്ജിയ നോർത്ത് കരോലിന സംസ്ഥാനങ്ങളിൽ വോട്ടെണ്ണൽ തുടരുകയാണ് പ്രസിഡന്റായി തന്നെയും വൈസ് പ്രസിഡന്റായി കമലാഹാരിസിനെയും തെരഞ്ഞെടുത്ത അമേരിക്കൻ ജനത അർപ്പിച്ച വിശ്വാസം സംരക്ഷിക്കുമെന്ന് ജോ ബൈഡൻ അറിയിച്ചു തനിക്ക് വോട്ട് ചെയ്തവരുടെ മാത്രമല്ല എല്ലാ അമേരിക്കക്കാരുടേയും പ്രസിഡന്റായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കോവിഡ്സമ്പദ് വ്യവസ്ഥ കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ കാര്യങ്ങളിൽ നടപടിയെടുക്കാനാണ് ജനങ്ങൾ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അധികാരം നൽകിയതെന്നും ബൈഡൻ പറഞ്ഞു

ബറാക് ഒബാമ പ്രസിഡന്റായിരുന്ന എട്ട് വർഷക്കാലം വൈസ് പ്രസിഡന്റായിരുന്നു ജോ ബൈഡൻ അതേസമയം പരാജയപ്പെട്ട ഡൊണാൾഡ് ട്രംപ് നിരവധി സുപ്രധാന സംസ്ഥാനങ്ങളിൽ ബാലറ്റ് വോട്ടുകൾ എണ്ണുന്നതിൽ കാലതാമസം വന്നതിനെ ചോദ്യം ചെയ്തു പെൻസിൽവേനിയ നെവാഡ അരിസോണ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇതിനെതിരെ നിയമ നടപടിയും ആരംഭിച്ചിട്ടുണ്ട് നിയുക്ത പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയാണ് ന്യൂസ് ഡെസ്ക് ആകാശവാണി രുര നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെയും വൈസ്പ്രസിഡന്റ് കമലാ ഹാരിസിനെയും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉൾപ്പെടെ ലോകനേതാക്കൾ അഭിനന്ദിച്ചു ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് അദ്ദേഹത്തോടൊപ്പം ഒന്നിച്ച് പ്രവർത്തിക്കുമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു

എസ് വൈസ് പ്രസിഡന്റായിരുന്ന കാലത്ത് ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ നിർണായകവും വിലമതിക്കാനാവാത്തതുമായ സംഭാവനയാണ് ജോ ബൈഡൻ അർപ്പിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ അറിയിച്ചു ഇന്ത്യ അമേരിക്കൻ ബന്ധം ഉന്നതങ്ങളിൽ എത്തിക്കുന്നതിന് ഒരിക്കൽകൂടി ബൈഡനുമായി ഒന്നിച്ചു പ്രവർത്തിക്കാൻ കാത്തിരിക്കുകയാണെന്നും മോദി പറഞ്ഞു കമലാഹാരിസിന്റെ വിജയം അമേരിക്കക്കാർക്ക് മാത്രമല്ല ഇന്ത്യൻ അമേരിക്കക്കാർക്കും അഭിമാനം എല്ലാ നൽകുന്നതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കമലാഹാരിസിന്റെ പിന്തുണയും നേതൃത്വവും ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി നരേന്ദ്രമോദി പറഞ്ഞു

എറണാകുളം ജില്ലയിൽ മാത്രമാണ് ഇന്നലെ ആയിരത്തിലധികം രോഗികൾ

ഇതോടെ കേരളത്തിൽ നെടുമ്പാശേരി മാത്രമായിരിക്കും ഹജ്ജ് എമ്പാർക്കേഷൻ പോയന്റ്

രുര അബുദാബിയിൽ ഐ പി എൽ ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ ഇന്ന് സൺ റൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും

രുര ഷാർജയിൽ വനിതകളുടെ ട്വന്റി ട്വന്റി ചലഞ്ച് ക്രിക്കറ്റ് ടൂർണമെന്റിൽ സൂപ്പർ നോവയ്ക്ക് ജയം

തിങ്കളാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇരുടീമുകളും വീണ്ടും ഏറ്റുമുട്ടും

ചന്ദേര പൊലീസ് രജിസ്റ്റർ ചെയ്ത നാല് കേസുകളിലാണ് അഞ്ച് മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷം ഖമറുദ്ദീനെ അറസ്റ്റു ചെയ്തത് രുര മുസ്ലീംലീഗ് ഉന്നതാധികാരസമിതി ഇന്ന് കോഴിക്കോട്ട് ചേരും ജ്വല്ലറി നിക്ഷേപത്തട്ടിപ്പുകേസിൽ എം സി ഖമറുദ്ദീൻ എം എൽ എ അറസ്റ്റിലായ സാഹചര്യത്തിലാണ് അടിയന്തര നേതൃയോഗം ചേരുന്നത് രുര ബിനീഷ് കൊടിയേരിയുടെ വീട്ടിലെ ഇ ഡി റെയ്ഡിനിടെ ബാലാവകാശ കമ്മീഷൻ രണ്ട് വയസുള്ള കൊച്ചുകുട്ടിയെ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രചരണം നടത്തിയത് ബാലാവകാശ ലംഘനമാണെന്ന് ബി

പി സംസ്ഥാന പ്രസിഡന്റ് കെ

ബാലാവകാശ കമ്മീഷൻ പാർട്ടി കമ്മീഷനായി മാറിയെന്നും അദ്ദേഹം ആലപ്പുഴയിൽ പറഞ്ഞു

അന്തിമ കണക്കുകൾ ലഭിക്കുമ്പോൾ ശതമാനം ഇനിയും ഉയർന്നേക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എച്ച്

മറ്റന്നാൾ വോട്ടെണ്ണും മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് മുൻ പ്രസിഡന്റ് കെ

രഘുനാഥ് കോഴിക്കോട് നിര്യാതനായി

ഇന്നലെ രാത്രി എട്ടരയോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം സംസ്കാരം ഇന്ന് വൈകിട്ട് മൂന്നിന് തിരുത്തിയാട് ശ്മശാനത്തിൽ നടക്കും

രഘുനാഥിന്റെ നിര്യാണത്തിൽ ബി

പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉത്തരമേഖല പ്രസിഡന്റ് ടി

രംഭ മുതിർന്ന മാധ്യമപ്രവർത്തകനും മലയാള മനോരമ വാരിക മുൻ പത്രാധിപരുമായ കെ പത്മനാഭൻ നായർ കോട്ടയത്ത് നിര്യാതനായി

സംസ്കാരം ഇന്ന് ഉച്ച കഴിഞ്ഞ് മൂന്നിന് കോട്ടയം മുട്ടമ്പലം ശ്മശാനത്തിൽ നടക്കും പത്മൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പത്മാനാഭനാണ് നാടക വേദി എന്ന ആശയത്തിന് രൂപം നൽകിയത്

കെ ആലപ്പാട് അറിയിച്ചു